കള്ളവോട്ട് കണ്ടെത്തിയ കാസർകോട്ടെ മൂന്നു ബൂത്തുകളിലും കണ്ണൂരിലെ ഒരു ബൂത്തിലും റീപോളിംഗ് നടത്തും വോട്ടെടുപ്പ് ഞായറാഴ്ച കമ്മീഷന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി യു

ലോക്സഭാ തെരഞ്ഞെടുപ്പില്ല് അവസാനഘട്ട വോട്ടെടുപ്പിനായുള്ള പ്ര്യസ്യ്പചാരണം ഊർജ്ജിതം പശ്ചിമബംഗാളിൽ പ്രപ്പാരണം ഇന്ന് അവസാനിക്കും

തിരുവനന്തപുരും മെഡിക്കൽ കോളേജിൽ കരൾമാറ്റ ശസ്ത്രക്രിയ പുന്ന്രാരംഭിക്കണമെന്ന് സംസ്ഥാന മനു ഷ്യാവകാശ കമ്മീഷൻ

ഇന്ന് ദേശീയ ഡെങ്കി ദിനം വിവിധ ജില്ലകളിൽ പരിപാടികൾ സംഘടിപ്പിച്ചു

കുട്ടികളുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരുവനന്തപുരത്ത് സമാപനം

എസ് എന്നിവടങ്ങളിലുമാണ് റീ പോളിംഗ് നടത്തുന്നത്

റിട്ടേണിംഗ് ഓഫീസർമാരുടെ റിപ്പോർട്ടുകളും ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെയും ജനറൽ ഒബ്സർവറുടെയും റിപ്പോർട്ടുകളും മറ്റു തെളിവുകളും വിശകലന്റ്റ് ചെയ്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തത്

തിരഞ്ഞെടുപ്പിന് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്താനും വിവരം രാഷ്ട്രീയ കക്ഷികളെ അറിയിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി

കഴിഞ്ഞ അരനൂറ്റാണ്ടായി സംഘടിതവും ആസൂത്രിതവുമായ രീതിയിൽ മലബാർ മേഖലകളിൽ നടക്കുന്ന കള്ളവോട്ടിനെതിരെ കോൺഗ്രസും യു

എഫും നടത്തിവന്നിരുന്ന പോരാട്ടത്തിന്റെ ആദ്യവിജയമാണ് ഈ തീരുമാനമെന്ന് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു പിണറായിലെ അമല ആർ

പശ്ചിമബംഗാളിലൊഴികെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും

ജെ പി സംഘർഷത്തെ തുടർന്ന് പശ്ചിമബംഗാളിൽ പ്രചാരണം ഇന്ന് രാത്രി പത്തിന് അവസാനിപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഉത്തരവിട്ടിരുന്നു

മുതിർന്ന ബി ജെ പി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ മാഉ ചന്ദൌലി മിർസാപുർ എന്നിവിടങ്ങളിൽ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു പാവപ്പെട്ടവരുടെയും കർഷകരുട്ടെയും സ്ത്രീകളുടെയും തന്റെ ഉന്നമനത്തിനായി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായിരുന്നുവ്പെന്ന് പ്രിശ്രീ മോദി മാവുവിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവെ പറഞ്ഞു ചന്ദൌലിയിൽ പൊതൂസ്മ്മേളനത്തെ അഭിസംബോധന ചെയ്യവെ എല്ലാവരുടെയും ഒപ്പം് എല്ലാവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നിയാണ് തന്റെ ഗവൺമെന്റ് പ്രവർത്തിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു

പുതിയ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് കാണിച്ചാണ് സിബിഐ തുടരന്വേഷണത്തിന് അപേക്ഷ നൽകിയിരുന്നത് കേസിലെ തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കുമെന്നും നിലവിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള അപേക്ഷ പിൻവലിക്കാൻ അനുവദിക്കണമെന്നുമാണ് ഡൽഹി ചീഫ് മെട്രോപൊളീറ്റൻ മജിസ്ട്രേറ്റ് നവീൻ ക്ലുമാറിനോട് സിബിഐ ആവശ്യപ്പെട്ടത്

ഇതിനായി ആശുപത്രി അധികൃതർ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഗവണ്മെന്റിന് സമർപ്പിച്ച നിർദ്ദേശങ്ങൾ അടിയന്തിരമായി അംഗീകരിച്ച് ശസ്ത്രക്രിയക്ക് അനുമതി നൽകണ മെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്ക് ഉത്തരവിട്ടു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ട റിക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കുമാണ് കമ്മീഷൻ ഉത്തരവ് നൽകിയത്

ജനറൽ ആശുപത്രി ഡി എച്ച് എസ് ഓഫിസ് വഞ്ചിയൂർ കോടതി പരിസരം ചിറക്കുളം കോളനി കുന്നുകുഴി സെന്റ് സെബാസ്റ്റിയൻസ് കോളനി കണ്ണമ്മൂല എന്നിവിടങ്ങളിൽ കോളനി ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി

ദിനാചരണത്തിന്റെ ഭാഗമായി കൊതുക് ഉറവിട നശീകരണം ഗൃഹസന്ദർശനം ബോധവത്ക്കരണം എന്നിവ നടത്തി കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും മരുതോങ്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗൃ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്

ശുചീകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ദിവസങ്ങളിൽ വരും തുടരാനും തീരുമാനിച്ചു

കേരളത്തിലെ രണ്ട് കടുവാസങ്കേതങ്ങളെ ്പിന്നിലാക്കി എണ്ണത്തിൽ വയനാട് ഒന്നാമതെത്തി

സമാപന സമ്മേളനം പ്രശസ്ത സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ ധാരാളം സിനിമകൾ കാണുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയുള്ള സിനിമകൾ കാണുന്നതിനുള്ള അവസരങ്ങൾ തീരെ കുറവാണ് എന്നാൽ കുട്ടികളുടെ മേളയിലുടെ ശിശുക്ഷേമസമിതിക്ക് അതിന് സാധിച്ചെന്ന് ശ്രീ

മികച്ച നടനായി ഗോകുൽ എൽ

ഇതോടെ കേസിൽ പ്രതിഭാഗത്തേക്ക് കൂറുമാറിയ സാക്ഷികളുടെ എണ്ണം അഞ്ചായി

ജില്ലയിലെ വിവിധ മഠങ്ങ ളിൽ നിന്ന് നെയ്യമൃത് സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു കിലോ മീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ചാണ് സംഘം കൊട്ടിയൂരി ലെത്തുക